പരിപാടിയായ ജൻ ആന്തോളൻ പ്രചാരണം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

മെത്തിക്കുന്നതിനുളള ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കേരളത്തിലെ ആദ്യ ഘട്ട ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

ഐ

ഉത്സവകാലം അടുത്തുവരുന്ന സാഹചരൃത്തിൽ ബോധവൽക്കരണം ശക്തമാക്കാനാണ് ജൻ ആന്തോളൻ പ്രചാരണത്തിന് തുടക്കമാവുന്നത്

കോവിഡ് ബോധവൽക്കരണത്തിൽ ജനകീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രചാരണം മാസ്ക് ധരിക്കുക ശാരീരിക അകലം പാലിക്കുക കൈകളുടെ ശുചിത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കു കയാണ് ക്യാമ്പെയിനിന്റെ ലക്ഷ്യം ചിലവ് കുറഞ്ഞതും കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന്തുമായ തരത്തിലാണ് ക്യാമ്പെയിൻ

മാധൃമുങ്ങളിലൂടെയുള്ള ജാഗ്രതാ ബോധവൽക്കരണ പ്രവർത്തന്റിങ്ങൾക്കും തുടക്കമാവും കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളും സ്ക്സ്ഥാനങ്ങളും യോജിച്ചാകും ക്യാമ്പെയിൻ

ബാനറുകൾ പോസ്റ്ററുകൾ ബോർഡുകൾ ഇലക്ട്രോണിക് ഡിസ്പ്ലേകൾ എന്നിവ വഴിയും കോവിഡ് ബോധവൽക്കരണം നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത് സംബന്ധിച്ച് ഇന്നലെ ബെംഗളൂരുവിൽ നടന്ന വെർചൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സമാധാനം കൈവരിക്കാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു

കർഷകരുമായും പഞ്ചായത്ത് പ്രതിനിധികളുമായും ബസോഹ്ലി റിയാസി എന്നിവിടങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരുമായും ഇന്നലെ ആശയവിനിമയം നടത്തുകയായിരുന്നു കേന്ദ്രമന്ത്രി

അംബേദ്കറുടെ ചരമദിനം കൂടിയായ വിജയദശമി ദിനത്തിൽ ധാരാളം പേർ ദീക്ഷാഭൂമിയും ചൈത്യഭൂമിയും സന്ദർശിക്കാറുണ്ട്

വിവിധ ജീവി വർഗങ്ങളെ വേഗത്തിലും കൃത്യമായും തിരിച്ചറിയുന്നതിനുള്ള മാർഗ്ഗമായ ഡി

എ ബാർകോഡിംഗിനുവേണ്ടിയുള്ള കൂടുതൽ പരിശ്രമങ്ങൾ ക്കായാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഇന്റർനാഷനൽ ബാർകോഡ് ഓഫ് ലൈഫും സംയുക്തമായി പ്രവർത്തിക്കുന്നത്

ഏറ്റവും അടുത്ത സൌകര്യപ്രദമായ ദിവസം മുതൽ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കും എസി എക്സ്പ്രസ് ദുരന്തോ രാജധാനി ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകളാണ് കൂടുതലും

ബി

സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്ന് ഷിംല എസ്

കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ പ്രതിദിന രോഗനിരക്ക് ഇന്നലെ ആയിരം കടന്നു

ത്രിപാഠിയാണ് മാൻ ഓഫ് ദ മാച്ച്

ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ ഉത്തരവുകൾക്കെതിരെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ള ജനങ്ങൾ തെരുവിലിറങ്ങിയത്

ടി സെക്രട്ടറി ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും

ഇതിനു മുൻപ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ശിവശങ്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു